കോർപ്പറേറ്റ് മൂലധനം മാധ്യമമേഖലയെ ദോഷകരമായി ബാധിക്കുന്നു ണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ട്രാൻസ്ജെന്റേഴ്സിന് പ്രതിമാസം മൂവായിരംരൂപവീതം നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ

ഇന്തൃ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ പൌരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ ആശ യക്കുഴപ്പത്തിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിയമത്തിലെ വൃവസ്ഥകളുടെ പേരിൽ രാഹുൽഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ജനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ജാർഖണ്ഡിലെ ഗിരിഡിയിൽ പറ ഞ്ഞു

ജെ

തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കുകയായി രുന്നു അദ്ദേഹം

ജെ

മുസ്ലിംങ്ങൾക്ക് എതിരല്ലെന്നും ആ സമുദാ യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്രം പ്രതിബദ്ധമാണെന്നും അദ്ദേഹം വൃക്തമാക്കി ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യത്തെ പൌരന്മാർതന്നെ യാണ് പൌരത്വനിയമം ആരുടെയും പൌരത്വം തട്ടിയെടുക്കുന്നതല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു നിയമവുമായി ബന്ധപ്പെട്ട് മുസ്ലിംങ്ങൾ ഭയപ്പെ ടുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല

പാകിസ്താനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേ ശിലും മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾ അവഹേളനം നേരിട്ടുകൊണ്ടിരി ക്കുകയാണെന്ന് പക്കൂഡിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിങ് അറിയിച്ചു ഇവർക്ക് ആശ്വാസമൊരുക്കാൻ വേണ്ടിയാണ് പൌരത്വനിയമഭേദഗതി ഗവൺമെന്റ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം അറി നരേന്ദ്രമോദി ഗവൺമെന്റ് മുസ്ലിം വിഭാഗത്തിൽ യിച്ചു പെട്ട നിരവധിപേർക്ക് പൌരത്വം നൽകിയിട്ടുണ്ടെന്നും മുസ്ലിംങ്ങൾക്കെ തിരേ ഒരുവിവേചനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും രാജ്നാഥ്സിങ് വൃക്തമാക്കി കേരള വർക്കിങ് ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം മുഖ്യ മന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു കോർപറേറ്റ് മൂലധനം വലിയതോതിൽ മാധ്യമമേഖലയെ ദോഷകരമായി ബാധിക്കുന്നു ണ്ട് സേവന വൃവസ്ഥ സംബന്ധിച്ച സുരക്ഷാ നിയമങ്ങൾ അപ്രസക്തമാ വുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യധാര ദേശീയ മാധ്യമങ്ങ ളിൽപ്പോലും കരാർ നിയമനങ്ങളാണ് നടക്കുന്നത് വിദേശമൂലധനം മാധ്യ മരംഗത്തേക്കു കടന്നുവന്നാൽ ജനതാൽപര്യങ്ങളെ അത് വക്രീകരിക്കും എന്ന നെഹ്രു ഗവൺമെന്റിന്റെ നിലപാട് പിൽക്കാല ഗവൺമെന്റുകൾ ഉപേ ക്ഷിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെ ട്ടു സമ്മേളനം ഇന്ന് സമാപിക്കും ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി അക്കിത്തത്തെ കേന്ദ്ര സഹ മന്ത്രി വി മുരളീധരൻ പാലക്കാട് കുമരനെല്ലൂരിലെ വീട്ടിലെത്തി പൊന്നാട യണിയിച്ചു കവിക്ക് ലഭിച്ച പുരസ്കാരം ഓരോ മലയാളിയുടെയും അഭി മാനമാണെന്ന് മുരളീധരൻ അഭിപ്രായപ്പെട്ടു ദേശീയതലത്തിൽ മലയാളത്തിന് ലഭി ക്കുന്ന അംഗീ കാരം കൂടിയാണ് ഇൌ ജ്ഞാനപീഠമെന്ന് മന്ത്രി പറഞ്ഞു നീതിന്യായ നടപടിക്രമങ്ങളിൽ നിർമിത ബുദ്ധിയുടെ ഉപയോഗം സ്വീക രിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് എസ്

എന്നാൽ കേസിലെ രേഖകൾ അതിവേഗം പരിശോധിക്കുന്നതിനപ്പുറം നിയ മപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർമിത ബുദ്ധിയെ മനുഷ്യമന സ്സിന് പകരമാക്കാൻ വഴിയൊരുക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു നാഗ്പൂരിൽ ഹൈക്കോടതി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച അനു മോദന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് ബോബ്ഡെ

ശ്രീരാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു മനുഷൃബന്ധങ്ങൾ ഡിജിറ്റൽ ലോകത്തേക്ക് ഒതുങ്ങുമ്പോൾ അതിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓൺലൈൻ ചതിക്കുഴികളെപ്പറ്റി കുട്ടികളെ ബോധ്യപ്പെടുത്തിയാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു തണൽ ആത്മഹത്യ പ്രതിരോധ കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു സ്പീക്കർ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ട്രാൻസ്ജെന്റേഴ്സിന് പ്രതിമാസം മൂവായിരം രൂപവീതം നൽകുന്ന പദ്ധതി ഗവൺമെന്റ് നടപ്പാക്കുമെന്ന് മന്ത്രി കെ

ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആവശ്യമായത്ര കാലയളവിൽ തുക നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ശസ്ത്രക്രിയ ചെയ്യു ന്നതിനായി രണ്ട് ലക്ഷംരൂപവീതം നൽകുന്ന പദ്ധതി നിലവിലുണ്ട് കോഴി ക്കോട്ട് സാമൂഹൃനീതിവകുപ്പ് മഴവില്ല് പദ്ധതിയിൽ നടപ്പാക്കുന്ന ട്രാൻസ് വിമൻ കെയർ ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോം സ്നേഹക്കൂട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ നാലുവർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്ത നങ്ങൾക്ക് എൽ ഡി എഫ്

തോമസ് ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ഗവൺമെൻ്റുകൾ നിർമാണ പ്രവർത്തനങ്ങൾക്കായി ആകെ ചെലവഴിച്ചത് ഈ തുകയാണെന്നും മന്ത്രി വെളിപ്പെടുത്തി ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് കൊച്ചിയിൽ റോഡിലെ കുഴിയിൽവീണ് യുവാവ് മരിച്ച സംഭവത്തിന് പിന്നിലെന്ന് മന്ത്രി ജി സുധാ കരൻ ആലപ്പുഴയിൽ പറഞ്ഞു റോഡുകൾക്ക് ചിലയിടങ്ങളിൽ മാത്രമാണ് പ്രശ്നം അത് പരിഹരിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട് എറണാകുളം നഗര ത്തിൽമാത്രം റോഡുകൾക്ക് ഏഴ് കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാതയിലെ ടോൾബൂത്തുകളിൽ ഫാസ്ടാഗ് പൂർണമായി നട പ്പാക്കാൻ ഒരുമാസംകൂടി സമയം അനുവദിച്ചു

പണം ഈടാക്കി വാഹനങ്ങൾ കടത്തിവിടുന്ന സംവിധാനം മൊത്തം ലൈനുകളുടെ നാലിലൊന്നിൽ കവിയരുതെന്നാണ് നിബന്ധന

മീറ്റ് ഇന്ന് സമാപിക്കും ഇന്ന് ആറു ഫൈന ലുകൾ ആണ് ശേഷിക്കുന്നത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പ്രമ്പരയിലെ ആദ്യമത്സരം ഉച്ചക്ക് ചെന്നൈ എം

കേരള പ്രീമിയർലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ഇന്ന് കോഴിക്കോട്ട് ആരം ഭിക്കും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എ യിലെ ആദ്യ മത്സര ത്തിൽ ഗോകുലം കേരള എഫ്

തിരൂർ രാജീവ്ഗാന്ധി സ്റ്റേഡിയത്തിലെ ഗ്രൂപ്പ് ബി ആദ്യ മത്സരത്തിൽ സാറ്റ് തിരൂർ കോതമംഗലം എം

കോളേ ജിനെ നേരിടും

എസ് എൽ ഫുട്ബോളിൽ ഗോവ ഒന്നിനെതിരെ രണ്ട് ഗോളിന് കൊൽക്കത്ത എ

ഇതോടെ എട്ട് കളികളിൽനിന്ന് പതിനഞ്ച് പോയിന്റുമായി ഗോവ ഒന്നാംസ്ഥാനത്തെത്തി

കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ട്രാവു എഫ്

ഈ ജയത്തോടെ നാല് കളികളിൽനിന്ന് എട്ട് പോയിന്റുമായി കൊൽക്കത്ത ഒന്നാംസ്ഥാനത്തെത്തി

മേളയുടെ സംഘാടകസമിതി ഓഫീസ് ഇൻഡോർ സ്റ്റേഡി യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു പാലക്കാട്ട് സമാപിച്ച ഇരുപത്തിയാറാമത് വനംകായികമേളയിൽ ഈസ്റ്റേൺ സർക്കിൾ ജേതാക്കളായി

സമാപന സമ്മേ ളനം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സുരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു മാനന്തവാടി താലൂക്കിലെ എട്ട് പട്ടികവർഗ കോളനികളിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തികൾ രാവിലെ തിരുനെല്ലി ചേക്കോട്ട് കോളനിയിൽ മന്ത്രി എ

ഓരോ കോളനിയുടെയും വിക സനത്തിന് ഒരുകോടിരൂപവീതം ചെലവഴിക്കും നീർച്ചാലുകളുടെ വീണ്ടെടുപ്പിനായി തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ കാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി മന്ത്രി ടി

രാമകൃഷ്ണൻ രാവിലെ ഒളവണ്ണ് മണാൽതോട്ടിൽ ഉദ്ഘാടനം ചെയ്യും

ജനകീയ പ്രക്ഷോഭങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചമർത്തുകയാണെന്ന് സി

എം ജനറൽ സെക്രട്ടറി സീതാറം യെച്ചൂരി ആലപ്പുഴയിൽ കുറ്റ പ്പെടുത്തി കേരളത്തിൽ മാത്രമാണ് മതേതരത്വം പൂർണതോതിൽ കാണാൻ കഴിയുന്നത് ഇതു സംരക്ഷിക്കാൻ മാതൃകാനടപടികളാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്നും യെച്ചൂരി പറഞ്ഞു അടിമാലിയിലെ വിപുലീകരിച്ച പോലീസ് കാന്റീൻ മന്ത്രി എം

ഒന്നാംക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപമാണ് കാന്റീൻ പ്രവർത്തിക്കുന്നത് കടകങ്ങളും കർഷക ആത്മഹത്യകളും പെരുകിവരുന്ന സാഹചര്യ ത്തിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു

കോഴിക്കോട് കാരശ്ശേരി ആനയാംകുന്നിൽ പ്ലസ്ടു വിദ്യാർഥിനിയുടെ മരണത്തോട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ യുവാവിനെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു കാരശ്ശേരി സ്വദേശി റിനാസിനെതിരേ ആത്മഹത്യാ പ്രേര ണാകുറ്റം ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ്സെടുത്തത്

ഇടുക്കിയിലെ കുമളി ടൌണും പരിസരവും പരിസ്ഥിതി ദുർബല മേഖ ലയാക്കാൻ നടത്തുന്ന നീക്കം തടയണമെന്ന് ഡീൻ കുര്യാക്കോസ് എം

ഈ ആവശൃം ഉന്നയിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറെകണ്ട് കത്ത് നൽകി

സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാ ടികളും സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കുമെന്നും സംഘടന അറി യിച്ചു വയനാടിന്റെ പുരോഗതിക്ക് നിരവധി സംഭാവനകൾ നൽകിയ ഫാദർ പൌലോസ് പൂമറ്റത്തിൽ അന്തരിച്ചു

സുൽത്താൻബത്തേരി സെന്റ് മേരീസ് കോളേജ് അടക്കം നിരവധി സ്ഥാപനങ്ങളുടെ രൂപീകരണ ത്തിന് മുൻനിരയിൽ പ്രവർത്തിച്ച വൃക്തിയായിരുന്നു പൂമറ്റത്തിൽ പൌലോസ് കോർ എപ്പിസ്കോപ്പ സംസ്കാരം ഉച്ചയ്ക്ക് മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടത്തും